അഞ്ചു കോടിയോ അതിലധികമോ മൂല്യമുള്ള് സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സി

വടക്കേ ഇന്തൃയിൽ അതിശൈതൃം തുടരുന്നു

അടുത്തവർഷം നടക്കുന്ന ഒളിമ്പിക് കാളിഫയറിലേക്ക് യോഗൃത നേടുന്നതിനുള്ള ട്രയൽ ബോക്സിംഗ് ഫൈനലിൽ മേരികോം നിഖാദ് സരീനുമായി ഇന്ന് ഏറ്റുമുട്ടും

തുടർന്നുള്ള അന്വേഷണത്തിൽ അറസ്റ്റിലായ രണ്ടുപേരും തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണെന്നും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ശൃംഖലയിൽപ്പെട്ടവരാണെന്നും കണ്ടെത്തി കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ ആറു പേർക്കും നാല് കമ്പനികൾക്കുമെതിരെയാണ് എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്

എൽ

സാമ്പത്തിക ശാക്തീകരണത്തിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുവേണ്ടിയാണ് ആർ

ഐ എൽ സി യിൽ റിപ്പ്ോർട്ട് ചെയ്യണമെന്ന് ഇത്തവണത്തെ ദൈമാസ വായ്പാ നയപ്രഖ്യാപ്പന്ത്തിനിടെ ആർ ബി ഐ വ്യക്തമാക്കിയിരുന്നു വാണ്ണിജ്യ്ബാങ്കുകൾ മറ്റ് സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങൾ ബാങ്കിംഗ് ഇത്ർ സ്ഥാപനങ്ങൾ ് എന്നിവയെ ഉൾപ്പെടുത്തിയാണ് ആർ

എൽ സി രൂപീകരിച്ചിട്ടുള്ളത്

ആയുർവേദ യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ സോവ റിഗ്പ ഹോമിയോപതി എന്നിവ ഉൾക്കൊള്ളുന്ന ആയുഷ് പദ്ധതി പ്രകാരമുള്ള വിവിധ പരിപാടികൾ ജമ്മുവിൽ ഫലപ്രദമായി നടപ്പാക്കണം ആരോഗ്യവും ആരോഗ്യ കേന്ദ്രങ്ങളും സ്ഥാപിക്കാനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ത്വരിതപ്പെടുത്താനും ആരോഗ്യ സേവനങ്ങൾ ഫലപ്രദമായി ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രീ ദുല്ലു നിർദ്ദേശിച്ചു

വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ആദ്യ ഘട്ടത്തിനാണ് ഈ തുക ചെലവഴിച്ചത്

ഇന്ത്യൻ സ്പ്രേന്നുംഗങ്ങൾ വളരെ അച്ചടക്കമുള്ളവരും മതേതരത്വം മുറുകെ പ്പിട്ടീക്കുന്നവരും മാനവികതയും മര്യാദയുമാണ് അവരെ നയിക്കുന്നതെന്നും അദ്ദേഹംപറഞ്ഞു യുദ്ധസമയത്തും യുദ്ധതടവുകാരോട്ടുക മനു്ഷ്യാവകാശം പാലിക്കുന്നതിനെക്കുറിച്ച് മുതിർന്ന് ഉദ്ദേട് ്ഗസ്ഥരോടും സേനാംഗങ്ങളോടും ന്യൂഡൽഹിയിൽ സംസാരിക്കുകിയ്യായിരുന്നു അദ്ദേഹം

ജമ്മു ഡിവിഷനിലെ രജൌരിയിലെ സൈനിക പോസ്റ്റുകൾക്കും തദ്ദേശവാസികൾക്കും നേരെ പാകിസ്ഥാൻ സൈനൃം വെടിവയ്പ്പും ഷെല്ലാക്രമണവും നടത്തുകയായിരുന്നുവെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ രണ്ടു തവണയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്

ഇന്നലെ വെള്ളിയാഴ്ച പ്രാർഥനയായതിനാൽ സംസ്ഥാനത്തുടനീളം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു

അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പൊലീസ് അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും ആകാശവാണിയുടെ ലക്നൌ പ്രതിനിധി അറിയിച്ചു പള്ളികൾ ഉൾപ്പെടെ സംഘർഷ മേഖലകൾ കേന്ദ്രീകരിച്ച് ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥരും തമ്പടിച്ചിട്ടുണ്ട്

അനധികൃതമായി രാജൃത്ത് പ്രവേശിക്കുകയോ വിസ പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷവും അനധികൃതമായി രാജ്യത്ത് തുടരുകയോ ചെയ്യുന്ന വിദേശികളെയും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി അവരുടെ രാജ്യത്ത് തിരിച്ചുപോകുന്നതിനുള്ള നിയമനടപടികൾക്കായി കാത്തിരിക്കുന്ന വിദേശികളെയും രാജ്യം വിടുന്നതുവരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാൻ ഇത്തരം സെന്റർ സ്ഥാപിക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്

ഹിമാചൽ പ്രദേശ് കുഫ്രി മനാലി സോലൻ ബുന്ദാർ സുന്ദർ നഗർ കൽപ എന്നിവിടങ്ങളിൽ താപനില ക്രമാതീതമായി താഴ്ന്നു രാജസ്ഥാനിലെ നിരവധി ഇടങ്ങളിലും താപനില മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിലെത്തി അടുത്ത രണ്ടു ദിവസം കൂടി ഈ സ്ഥിതി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു ചൊവ്വാഴ്ചയോടെ ശൈത്യത്തിന് ശമനമുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്

സമൂഹമാധ്യമങ്ങളിലൂടെ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ നേട്ടങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയ ഔട്ട്റീച്ച് ആന്റ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ദേശീയ ശിൽപ്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കർണ്ണാടകയിലെ വിവിധ വാണിജ്യ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് കലാബുറാഗി വിമാനത്താവളത്തിന്റെ വികസനത്തോടെ സാധിച്ചിട്ടുണ്ട്

മേരികോം നിഖാദ് സരീനുമായി ഇന്ന് ഏറ്റുമുട്ടും

ക്രി നിഖാദ് സരീൻ ദേശീയ ചാമ്പ്യൻ ജ്യോത്തിഗുിലിയയെ പരാജയപ്പെടുത്തിയാണ് ട്രയൽ ഫൈറ്റലിലെത്തിയത് മേരികോം ഋതു ഗ്രേവാളിനെയാണ് പരാജയപ്പെടുത്തിയത്

രണ്ട് ദിവസത്തെ ട്രയൽ മത്സരങ്ങൾ ഇന്നത്തെ ഫൈനലോടെ സമാപിക്കും

ഒളിമ്പിക് കാളിഫയർ അടുത്ത വർഷം ഫെബ്രുവരിയിൽ ചൈനയിലാണ് നടക്കുന്നത് പുരുഷ വിഭാഗം ട്രയൽ മത്സരങ്ങൾ നാളെ കർണ്ണാടകയിലെ ബല്ലാരിയിൽ ആരംഭിക്കും

ആയുധം യുദ്ധത്തിനു് സജ്ജമായതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രി സെർഗി ഷൊയ്ഗു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറിയിച്ചു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൽ ഘടിപ്പിച്ചാണ് ഇത് വിക്ഷേപിക്കുന്നത്